ത മൂന്നാർ മുത്തങ്ങ വന്യജീവി ഡിവിഷനുകളിൽ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ ഇന്ന് പുനഃരാരംഭിക്കും വാർത്തകൾ വിശദമായി ഈ വർഷത്തെ സ്വച്ച് സർവേക്ഷൺ പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പ്രഖ്യാപിക്കും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

ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾ ശുചീകരണ ജീവനക്കാർ സ്വച്ഛ പ്രവർത്തകർ എന്നിവരുമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ആശയ വിനിമയം നടത്തും

ദേദ വ്യക്തികളുടെ ആവശ്യ പ്രകാരം കോവിഡ് പരിശോധനയ്ക്ക് വൈകാതെ രാജ്യത്ത് സംവിധാനം ഏർപ്പെടുത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിശോധനക്കാവശ്യമായ മാർഗ്ഗ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി വരികയാണെന്ന് നിതി ആയോഗ് അംഗം ഡോ

കെ പോൾ ഡൽഹിയിൽ പറഞ്ഞു

മറ്റു ജില്ലകളിലും കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഏറിയ പങ്കിനും സമ്പർക്കത്തിലൂടെയാണ് രോഗംബാധിച്ചത്

രുര എറണാകുളം ജില്ലയിൽ നൂറ് പിന്നിട്ട വയോധികൻ കോവിഡ് മുക്തനായത് ആരോഗ്യ പ്രവർത്തകരിലും പൊതു സമൂഹത്തിലും സന്തോഷവും ആശ്വാസവും പകർന്നു വിവരങ്ങളുമായി ന്യൂസ് ഡസ്ക്കിൽ നിന്ന് അനുഷ ആത്മപ്രകാശ്

ആശുപത്രി ജീവനക്കാർ പൊന്നാട അണിയിച്ച് പൂക്കൾ നൽകി ആദരിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്കയച്ചു

സംസ്ഥാനത്ത് കോവിഡ് മുക്തനാകുന്ന ഏറ്റവും പ്രായം കൂടിയവരിൽ ഒരാളാണ് പരീദ് നേരത്തെ അദ്ദേഹത്തിന്റെ മകനും രോഗം ഭേദമായതിനെത്തുടർന്ന് ആശുപത്രി വിട്ടിരുന്നു

വിമാനത്താവളത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കും കോവിഡ് സ്ഥിരീകരിച്ചു രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ പല ഉദ്യോഗസ്ഥരും നിരീക്ഷണത്തിൽ പോയില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി രുമ കോവിഡ് ക്ലസ്റ്ററും സമ്പർക്ക വ്യാപനവും റിപ്പോർട്ട് ചെയ്ത തൃശൂർ അമലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജനറൽ അടക്കം വിഭാഗങ്ങൾ തൽക്കാലം അടച്ചിടും

പി ആശുപത്രിയിലെത്തിയ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടങ്ങിയ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

കോവിഡ് പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്താൻ ആശുപത്രിയ്ക്ക് അഞ്ച് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്

രുദ കൊച്ചിയിലെ അടച്ചിട്ട ചമ്പക്കര മാർക്കറ്റ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഈ ആഴ്ച തന്നെ തുറക്കാൻ തീരുമാനിച്ചു കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി മാർക്കറ്റിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജ്യർ ഉറപ്പുവരുത്തും രുമ കോവിഡ് രോഗികളുടെ ഫോൺവിളി വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും പൊലീസിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും വ്യക്തി സ്വകാര്യതയിലെ കടന്നുകയറ്റമാണ് നടപടി എന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം രുര കോവിഡ് വാക്സിൻ കണ്ടെത്താൻ നടത്തുന്ന ആഗോള പങ്കാളിത്ത പരിപാടിയിൽ അടിയന്തരമായി പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടന എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യങ്ങൾ അത് പൂഴ്ത്തിവെയ്ക്കാൻ ശ്രമിക്കുന്നത് പകർച്ചവ്യാധിയെ കൂടുതൽ ഗുരുതരമാക്കുമെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രസ് അഥാനം ഗബ്രിയേസസ് അഭിപ്രായപ്പെട്ടു

ഒമ്പത് പേരെക്കൂടി ഇനിയും കണ്ടെത്താനുണ്ട്

മോശം കാലാവസ്ഥമൂലം തെരച്ചിൽ നടപടികൾ സാവധാനമാണ് പുരോഗമിക്കുന്നത്

വയനാട് മുത്തങ്ങ തോൽപ്പെട്ടിയിലെ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളും ഇന്ന് പുനഃരാരംഭിക്കും ആറ് മാസത്തിലധികമായി ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു രുമ സംസ്ഥാനത്തെ മികച്ച പൊലീസ് സ്റ്റേഷന് നൽകുന്ന മുഖ്യമന്ത്രിയുടെ അവാർഡ് ഇത്തവണ രണ്ട് സ്റ്റേഷനുകൾ പങ്കുവെച്ചു തൃശൂർ മണ്ണുത്തി പൊലീസ് സ്റ്റേഷനും പത്തനംതിട്ട സ്റ്റേഷനുമാണ് അവാർഡിന് അർഹമായത് കോട്ടയം പാമ്പാടി പൊലീസ് സ്റ്റേഷനാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം തമ്പാനൂർ പൊലീസ് സ്റ്റേഷൻ മൂന്നാം സ്ഥാനം നേടി രുര പട്ടികവർഗ്ഗ സങ്കേതങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്ന അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതികളുടെ കണ്ണൂർ ജില്ലാതല പ്രവർത്തനോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കോൺഫറൻസിലൂടെ വീഡിയോ നടത്തും കൂത്തുപറമ്പിൽ ഉച്ചയ്ക്കും മട്ടന്നൂരിൽ വൈകിട്ടുമാണ് ഉദ്ഘാടന ചടങ്ങ് രേര മണലെടുപ്പിലെ അഴിമതി വിജിലൻസ് പമ്പ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇന്നും വാദം തുടരും മണലെടുപ്പിൽ സ്വകാര്യ കമ്പനിയ്ക്ക് കോടികളുടെ ലാഭമുണ്ടാകുന്ന അഴിമതി നടന്നെന്നാണ് ഹർജിയിലെ ആരോപണം

ഏഴു കോടി രൂപ ചെലവിലാണ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് രുമ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം നാളെയാരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതു വിതരണ സെക്രട്ടറി അറിയിച്ചു പൂജ്യത്തിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്ക് ആദ്യ ദിവസം കിറ്റ് ലഭിക്കും തുടർ ദിവസങ്ങളിൽ മറ്റു നമ്പറുകളിലെ അവസാന അക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കിറ്റ് വിതരണം ചെയ്യും വയനാട് മുത്തങ്ങ തകരപ്പാടിയ്ക്ക് സമീപം രേഖകളില്ലാതെ കടത്തുകയായിരുന്ന തൊണ്ണൂറ്റി രണ്ടര ലക്ഷം രൂപ ലഹരി വിരുദ്ധ സ്ക്വാഡും പൊലീസും നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി മൈസൂരിൽ നിന്ന് ബത്തേരി ഭാഗത്തേക്ക് വന്ന മിനി ലോറിയിൽ തക്കാളിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം രുമ ജമ്മു കശ്മീരിലെ ബാരാമുള്ളയിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ച സംഭവത്തോട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ ഭീകരനെയും സൈന്യം വെടിവെച്ച് കൊന്നു നേരത്തെ സേനയുടെ പ്രത്യാക്രമണത്തിൽ രണ്ട് ഭീകരർ വധിക്കപ്പെട്ടിരുന്നു

ഇയാളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു രുമ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സേവിംഗ്സ് അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തവരുടെ പിഴയ്ക്ക് പുറമെ എസ് എം എസ് നിരക്കും ഒഴിവാക്കി

കഴിഞ്ഞ മാർച്ച് മുതൽ പിഴ ഒഴിവാക്കിയതായി ബാങ്ക് അറിയിച്ചിരുന്നു

കേസിലെ കക്ഷികളോട് മൂന്നു ദിവസത്തിനകം അവരുടെ ഭാഗം രേഖാമൂലം സമർപ്പിക്കാൻ ഡിവിഷൻ ബഞ്ച് ആവശ്യപ്പെട്ടു രുമ റെയിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ഡ്രോണുകളെ ഉപയോഗിക്കുന്ന നിരീക്ഷണ സംവിധാനം റെയിൽവേ ആവിഷ്കരിച്ചു